ശബരിമല വിഷയത്തിൽ പ്രതിപക്ഷം ഇന്നും കേരള നിയമസഭ സ്തംഭിപ്പിച്ചു

ലോകകപ്പ് ഹോക്കിയിൽ ഇന്ന് അർജന്റീന സ്പെയിനിനേയും ന്യൂസിലാന്റ് ഫ്രാൻസിനെയും നേരിടും

ഇരു സംസ്ഥാനങ്ങളിലും ആടുത്ത മാസം ഏഴിനാണ് വോട്ടെടുപ്പ്

തെലങ്കാനയിൽ ഇന്ന് മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഇന്ന് സംഷബാദിൽ നടക്കുന്ന വിദ്യാർത്ഥി യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്

തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു വിവിധയിടങ്ങളിൽ പ്രചരണ യോഗങ്ങളിൽ സംസാരിക്കുമ്പോൾ ടി ഡി പി അധ്യക്ഷൻ എൻ ചന്ദ്രബാബു നായിഡു സെറിലിംഗപള്ളിയിലെ റോഡ് ഷോയിൽ പങ്കെടുക്കും

സമൂഹ്ത്തിലെ വിവിധ തലങ്ങളിലുള്ളവരുമായി ആശയവിനിമയം നടത്തിയതിന് ശേഷമാണ് കോൺഗ്രസ് പത്രിക പുറത്തിറക്കിയത് പ്രകടന പത്രിക കേവലം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല മറിച്ച് കോൺഗ്രസിന്റെ സമൂഹത്തോടുള്ള പ്രതിബദ്ധതയാണെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു

ഉച്ചയ്ക്ക് രണ്ട് മണി വരെയാണ് വോട്ടെടുപ്പ്

തെക്കൻ കാശ്മീരിൽ പുൽവാമ ജില്ലയിലെ പാംപോർ മേഖലയിൽ ഇന്ന് പുലർച്ചെയായിരുന്നു സംയുക്ത സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ഭീകരർ കൊല്ലപ്പെട്ടത് ഭീകര പ്രവർത്തകരുടെ സാന്നിധൃത്തെക്കുറിച്ച് സൂചന ലഭിച്ച സുരക്ഷാസേന പ്രദേശത്ത് തെരച്ചിൽ ഊർജ്ജിതമാക്കിയിരുന്നു കൊല്ലപ്പെട്ട ഭീകരരിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടുകിട്ടിയിട്ടുണ്ട് ഭീകരരുടെ വധം സേനയുടെ വൻ വിജയമാണെന്ന് ജമ്മുകാശ്മീർ പോലീസ് മേധാവി ദൽബിർ സിംഗ് ആകാശവാണിയോട് പറഞ്ഞു

പൂഞ്ച് മേഖലയിൽ യാതൊരു പ്രകോപനവും കൂടാതെ പാകിസ്ഥാൻ മോട്ടാർ ഷെല്ലാക്രമണം നടത്തുകയായിരുന്നുവെന്ന് ഇന്ത്യൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഇന്ത്യൻ സൈനിക പ്ലോസ്റ്റിനും ജനവാസ കേന്ദ്രങ്ങളിലേക്കുമാണ് പാകിസ്മാൻ വെടിവെയ്പ്പും ഷെല്ലാക്രമണവും നടത്തിയത്ക്ക് ഇന്ത്യൻസേന ശക്തമായ തിരിച്ചുടിച്ചു ആളപായമോ ന്യാശ്രനുഷ്ടമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല

വിശദാംശങ്ങളുമായി പ്രിയ

എൽ

വിക്ഷേപണ പേടകം ഏറ്റവും ലഘുവായ രീതിയിൽ കോർ എലോൺ കോൺഫിഗറേഷനിലായിരിക്കും സഞ്ചരിക്കുന്നത്

എസ് ആർ ഒ യെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദൈർഘ്യമേറിയ പറക്കൽ ദൌതൃമാണിത് രണ്ട് മണിക്കൂറിനടുത്ത് സമയമാണ് ദൌത്യത്തിന് വേണ്ടി വന്നത്

കഴിഞ്ഞ് മാസമാണ് മന്ത്രാലയം ബജറ്റ് തയ്യാറാക്കി തുടങ്ങിയക്ക് ഇതോടനുബന്ധിച്ച് നഗരവികസനം പാർപ്പിടം ഊർജ്ജിക്ക് തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി ശ്രീ അരുൺ ജെയ്റ്റ്ലി ഉന്നതതല ചർച്ചകൾ നടത്തിയിരുന്നു

ഈ സ്ഥിതി ഏകീകൃക സ്വാഭാവമുള്ള ജി എസ് ടി ആവശ്യമാണെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി ന്യൂഡൽഹിയിൽ നടക്കുന്ന സി ഐ ഐ ആരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ആയുഷ്മാൻ ഭാരത് നിസ്തുല സേവനം നടത്തുന്നതായും ശ്രീ ജെയ്റ്റ്ലി പറഞ്ഞു

ഉച്ചകോടിയിൽ മൂന്ന് സമ്മേളനങ്ങളാവും ഉണ്ടാകുകയെന്ന് വിദ്ദേശിക്കാർ്യ സെക്രട്ടറി വിജയ് ഗോഖലെ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു

ചൈനീസ് പ്രസിഡന്റ് ജർമ്മൻ ചാൻസിലർ സ്പെയിൻ പ്രധാനമന്ത്രി ഐക്യരാഷ്ട്രസഭ ജനറൽ സെക്രട്ടറി തുടങ്ങിയവരുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബേയുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു

വൈകുന്നേരം അഞ്ച് മണിക്ക് ഭൂവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ് മത്സരം വൈകിട്ട് ഏഴിന് നടക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ ന്യൂസിലാന്റ് ഫ്രാൻസിനെ നേര്ടിടും ലോകകപ്പിൽ അർജന്റീനയും സ്പെയിനും തമ്മിൽപൂള്ളതുവരെ ഏറ്റുമുട്ടിയ മത്സരത്തിൽ അർജന്റീന രണ്ട് ത്വ്വണ്യും സ്പെയിൻ മൂന്ന് തവണയും വിജയിച്ചിട്ടുണ്ട് ര്ണ്ട് മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു ന്യൂസിലാന്റും പൂഫ്യാൻസും ഇതുവരെ ലോകകപ്പിൽ ഏറ്റുമുട്ടിയിട്ടില്ല ലോകകപ്പ് ഹോക്കിയിലെ ആദ്യ മത്സരത്തിൽ ഉജ്ജല വിജയം നേടിയ ഇന്ത്യൻ ടീമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു സ്വപ്നതുല്യമായ തുടക്കമാണ് ഇന്ത്യൻ ടീമിന് ലോകകപ്പ് മത്സരത്തിൽ ലഭിച്ചതെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു വരും മത്സരങ്ങളിലും ഇന്ത്യൻ ടീമിന് മികച്ച പ്രകടനം കാഴ്ച വയ്ക്കാൻ സാധിക്കട്ടെയെന്നും അദ്ദേഹം ആശംസിച്ചു

സഭ സമ്മേളിച്ചപ്പോൾ തന്നെ ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ബഹളം ആരംഭിച്ചു

ശബരിമലയിലെ അടിസ്ഥാന സൌകര്യങ്ങളുടെ അപര്യാപ്തതയും ഭക്തർ നേരിടുന്ന പ്രശ്നങ്ങളും ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്

എന്നാൽ ഇന്നലെ തന്നെ സഭയിൽ ശബ്രിമലയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി ന്ടൽകിയതാണെന്നും ഇക്കാര്യത്തിൽ കൂടുതലൊന്നും പറയാന്നിള്ല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം ഒന്നടങ്കം നടുത്തളത്തില്ിറങ്ങി ബഹളം വച്ചു തുടർന്ന് സഭ ഇന്നത്തേയ്ക്ക് പിരിഞ്ഞതായി സ്പീക്കർ അറിയിച്ചു

വലിയ നടപ്പന്തലിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കും വിരിവെയ്ക്കാം ശരണം വിളിക്കുന്നതിനും നാമജപം നടത്തുന്നതിനും കൂട്ടം ചേരുന്നതിനും വിലക്കില്ലന്ന് പത്തനംതിട്ട ജില്ലാ കളക്റ്റർ പി ബി ന്യൂഹ് ശബരിമലയിൽ അറിയിച്ചു